പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ എട്ടാം ഗഡു സാമ്പത്തിക ആനുകൂലൃങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിതരണം ചെയ്തു

ജില്ലകളിൽ ഇന്നു പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു ഈ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്

കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

രാജ്യത്തെ വാക്സിനേഷൻ യജ്ഞം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യത്തെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യാൻ അത്രയും മതിയാകുമെന്നും എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകുമെന്നും നിതി ആയോഗ് അംഗം വി കെ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു

ജൂലൈ മുതൽ സ്പുട് നിക് വാക്സിൻ ഇന്ത്യയിൽ തുദ്ദേശീയമായി ഉല്പാദിപ്പിക്കുമെന്ന് നിതി ആയോഗ് അംഗം സ്ക്ക് റ്പി

പോൾ അറിയിച്ചു

ഒപ്പം പരശുരാമ ജയന്തി ആശംസകളും അദ്ദേഹം പങ്കുവച്ചു

സാമൂഹൃ ശാക്തീകരണം ഐകൃം സാഹോദര്യം അനുകമ്പ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പാഠങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ശ്രീ മോദി ട്വീറ്റിൽ പറഞ്ഞു

ഈ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ശനിയാഴ്ച ആലപ്പുഴ കോട്ടയം എറണാക്കൂള്ളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കുമെന്നും കാലാവസ്ഥാപ്പിക്കുപ്പ് അറിയിച്ചു

മാധ്യമങ്ങൾ സംരംഭകത്വം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇന്ദു ജെയിൻ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി ഉപരാഷ്ട്രപതി എം

സേവന സംരംഭങ്ങൾ ഇന്തൃയുടെ പുരോഗതിയോടുള്ള അഭിനിവേശം സംസ്ക്കാരത്തോടുള്ള ആഴത്തിലുള്ള താൽപ്പര്യം എന്നിവയുടെ പേരിൽ ഇന്ദു ജെയിൻ ഓർമ്മിക്കപ്പെടുമെന്ന് ട്വീറ്റിൽ മോദി പറഞ്ഞു അനുകമ്പ കഠിനാധാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയാൽ ഇന്ദു ജെയിൻ സ്മരിക്കപ്പെടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു

നിശ്ചിത സമയത്തിനുള്ളിൽ സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടതിനാലാണ് തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്തായ ഒലിയെ പ്രസിഡന്റ് ബിന്ധ്യാ ദേവി ഭണ്ടാരി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയമിച്ചത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒലി മുപ്പത് ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം

പ